സമഗ്ര മേഖലയിൽ രണ്ടര ലക്ഷം പുതിയ തൊഴിൽ അവസരം സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര മന്ത്രി മഹേന്ദ്രേനാഥ് പാണ്ഡെ

ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ വിജയ് മലൃയ്ക്ക് യു

കോടതിയുടെ അനുമതി

ടി

ടിമേഖലയിൽ മറ്റ് വികസിത രാജ്യങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

അതിർത്തിയിലെ വേലി നിർമ്മാണം ഫ്ളഡ് ലൈറ്റുകൾ സ്ഥാപിക്കൽ റോഡ് നിർമ്മാണം എന്നിവ പുരോഗമിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി

അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ കാർഡുകൾ ലഭിക്കാതിരിക്കാൻ സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേയും ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഹൈക്കോടതിയ്കാണ് മല്യയ്ക്ക് അപ്പീൽ അനുമതി നൽകിയത്

വായ്പാ ത്ട്ടിപ്പ് കേസിൽ മല്യ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനാലായിരുന്നു വിധി മല്യയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവിൽ ബ്രിട്ടനിലെ ആഭ്യന്തര സെക്രട്ടറി ഒപ്പുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വെസ്റ്റ് മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ത്യ ഹാജരാക്കിയ തെളിവുകൾ അംഗീകരിച്ചതിനെ ചോദ്യം ചെയ്യാനാണ് മല്യയ്ക്ക് അനുമതി ലഭിച്ചത്

അപ്പീൽ അനുമതി ലഭിച്ചതോടുകൂടി മല്യയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് വൈകും നടപടികൾ വീക്ഷിക്കാനായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതിനിധികളും കോടതിയിൽ സന്നിഹിതരായിരുന്നു

ജി

അഞ്ച് വർഷമായി അക്രമങ്ങളിൽ കുറവുണ്ടായെന്നും ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം ഗണ്യമായി കുറഞ്ഞതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു

ടികളേയും ബംഗളുരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെയും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേഷ് പൊഖ്രിയാൽ അഭിനന്ദിച്ചു

പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘമാണ് മുർഷിദാബാദിൽ നിന്ന് അബ്ദുൾ റഹിം എന്നയാളെ അറസ്റ്റ് ചെയ്തത്

ഇതേസംഘടനയിൽപ്പെട്ട നാല് പേർ കഴിഞ്ഞ ആഴ്ച പിടിയിലായിരുന്നു

ഇത് ഈ മേഖലയിലെ കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പ്രവർത്തന മൂലധനം എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമാകും കേന്ദ്ര മൃഗസംരക്ഷണ മത്സൃ ബന്ധന വകുപ്പ് മന്ത്രി പ്രതാപ് ചന്ദ്ര സാരംഗി ലോക്സഭയെ അറിയിച്ചതാണിക്കാര്യം

പാകിസ്ഥാൻ ഈ സംഘടനയെ ഭീകരവാദ സംഘടനയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു

ഉത്തരേന്ത്യൻ ഗതാഗതമേഖലയിൽ ഏകീകൃത നികുതി നിരക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു നികുതി വെട്ടിപ്പ് തടയുന്നതിനായി ഏകീകൃത നിരക്ക് ആവശ്യമാണെന്ന് ഹരിയാന മന്ത്രി കൃഷൻ ലാൽ പൻവാർ പറഞ്ഞു പഞ്ചാബ് ഹരിയാന ഡൽഹി ചണ്ഡിഗഡ് ഹിമാചൽപ്രദേശ് ഉത്തർപ്രേദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു

ലോകകപ്പിൽ ഏറ്റവുമധികം സെഞ്ചറികൾ എന്ന റെക്കോർഡിനൊപ്പമെത്തിയ് രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത് കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

ഇതോടെ ശ്രീലങ്കയുടെമുൻതാരം കുമാർ സംഗകാര കുറിച്ച ലോകകപ്പ് റിക്കോർഡിനൊപ്പം രോഹിത് ശർമ എത്തി

ബൌളിങ്ങിൽ നാല് വിക്കറ്റുമായി ജസ്പ്രീത് ബുമ്രയും മൂന്ന് വിക്കറ്റുമായി ഹാർദിക് പാണ്ഡ്യയും തിളങ്ങി ഷാക്കിബ് അൽ ഹസനും മുഹമ്മദ് സൈഫുദ്ദീനും ബംഗ്ലാദേശിനായി അർധ സെഞ്ചുറികൾ നേടി

പട്ടികയിൽ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് ഇന്ത്യ

ഇന്ന് ഇംഗ്ലണ്ട് ന്യൂസ് ലാൻഡിനെ നേരിടും ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

ഇതരസംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭിക്കാനുണ്ടെങ്കിലും അത് എത്തിക്കാൻ ആവശ്യമായ ലൈനില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

പല ഡാമുകളുടെയും അടിത്തട്ട് വരെ തെളിഞ്ഞ നിലയിലാണ്

ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഈ മാസം ഏഴ്ച് വരെ വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലൂർ ൽക്തമാകില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു

സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിൽ വിശദമായ ചർച്ച യോഗത്തിലുണ്ടാകുമെന്ന് മന്ത്രി തോമസ് ഐസക് അറിയിച്ചു

ദിവസം നാല് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഫീസ് നിർണ്ണയിക്കാനാണ് തീരുമാനം

ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നടപടികളെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഇതു സംബന്ധിച്ച് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്

മത്സരത്തിന്റെ തുടക്കം മുതൽ അർജന്റീനയ്ക്കെതിരെ ശക്തമായ ആധിപത്യവുമായാണ് ബ്രസീൽ മുന്നേറുന്നത്